സംസ്ഥാനത്തിന്റെ നേട്ടങ്ങൾ പുതിയു തലത്തിലേക്കുയരുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ

എസ്

ഘട്ടത്തിന് ഇന്ന് തുട്ടുക്കുമാകും പരീക്ഷ കോവിഡ് മാനദണ്ഡം പാലിച്ച്

തീറെഴുതിയെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ആരോപണം തള്ളി മന്ത്രിമാർ

വ്യവസായിക അവശിഷ്ടമായ മണൽ ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കാൻ ധാരണയായി

ഡിജിറ്റൽ സാങ്കേതിക രംഗത്തെ അത്യാധുനിക മേഖലകളിൽ പ്രാഗൽഭ്യമുള്ളവരെ വാർത്തെടുക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിയട്ടെയെന്ന് മുഖ്യമന്ത്രി പ്രത്യാശിച്ചു

സിയുടെ പൊതു പ്രാഥമിക പരീക്ഷയുടെ ആദ്യഘട്ടത്തിന് ഇന്ന് എസ്

കോവിഡ് മാനദണ്ഡം പാലിച്ചാണ് പരീക്ഷ്

സി അറിയിച്ചു

എം

സി എന്ന കമ്പനിയുമായി സംസ്ഥാന സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിൽ വൻ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

മെഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടു

പി ജയരാജൻ സർക്കാർ ഒരു കരാറിലും ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ലെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു

നിജസ്ഥിതി മനസ്സിലാക്കി പ്രതിപക്ഷ നേതാവ് മാപ്പു പറയുമെന്ന് കരുതുന്നുവെന്നും മന്ത്രി പറഞ്ഞു

വിജയരാഘവൻ കോഴിക്കോട് പറഞ്ഞു ജില്ലകൾ മാർച്ച് ആഴക്കടൽ മത്സ്യബന്ധന കരാറിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ മാർച്ച് കൊല്ലത്ത് കെ എസ്

കൊച്ചിയിലും പത്തനംതിട്ടയിലും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി പത്തനംതിട്ടയിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു

കവരത്തി ദ്വീപിൽ ല്ലക്ഷ്ദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ ആസ്ഥാന മന്ദിരമായ അടൽ പരിയാവരൺ ഭവൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ നാടിന് സമർപ്പിച്ചു ലക്ഷദ്വീപിന്റെ പ്രകൃതി സുരക്ഷയും സൌന്ദര്യവും നിലനിർത്തിക്കൊണ്ട് മൂന്ന് ദ്വീപുകളിൽ നിതി ആയോഗ് പദ്ധതിയുടെ കീഴിൽ അന്തർദേശീയ നിലവാരത്തിലുള്ള ടുറിസം പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതികൾ നൽകിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു ഇതിലൂടെ ലക്ഷദ്വീപ് ഉയർന്ന സാമ്പത്തികവളർച്ചയും കൂടുതൽ തൊഴിൽ അവസരങ്ങളും കൈവരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് സുഹെലി ബംഗാരം എന്നീ ദ്വീപുകളും കേന്ദ്രമന്ത്രി സന്ദർശിക്കും

സി പി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മന്ത്രി എ

പിയെ യു ഡി

ഐ ക്യേത്താവ് ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥിക്കോട്ടയം പര്യടനം പൂർത്തിയാക്കി ഇന്ന് ആലപ്പുഴയിൽ പ്രവേശിച്ചു

ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് പര്യടനം പൂർത്തിയാക്കി ഇന്ന് മലപ്പുറത്തെത്തി

സുരേന്ദ്രൻ നയിക്കുന്ന വിജയ് യാത്രയ്ക്ക് നാളെ കാസർഗോട്ട് തുടക്കമാകും നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് തളിപ്പടപ്പ് മൈതാനിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന യു ഡി

സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും അസമത്വങ്ങൾക്കെതിരെ പോരാടാനുമാണ് സാമൂഹ്യ നീതി ദിനാചരണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാശ്രീപദ്ധതി പത്ത് ലക്ഷം കുട്ടികൾക്ക് ലാപ്ടോപ്പ് ലഭ്യമാക്കാനുള്ള വിദ്യാശ്രീ പദ്ധതിയിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇനിയും അംഗമാകാം

ബാക്കി തുക മൂന്നു വർഷം കൊണ്ട് കെഎസ്എഫ്ഇ ചിട്ടി വഴി അടച്ചുതീർത്താൽ മതിയാകും